സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ ക്ലിട്ടുപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സിനിമ തിയേറ്ററുകളും മാളുകളും ്അട്ച്ചിടും ചടങ്ങുകൾക്കും കർശന നിയന്ത്രണം

കേരളം കടന്നുപ്പോകുന്നത് രോഗവ്യാപനം തീവ്രമായ ഘട്ടത്തിലൂടെയെന്ന് മുഖ്യമന്ത്രി ജനിതക മാറ്റം വന്ന വൈറസുകൾ പിടിമുറുക്കുന്നു പൊതു സ്ഥലങ്ങളിൽ ഇരട്ട മാസ്ക്ക് ധരിക്കുന്നത് ഗുണപ്രദം

വയനാട് ജില്ലയിലെ മുഴുവൻ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളും മേയ് ദ വരെ അടച്ചിടും മേയ് മാസത്തെ പി എസ് സി പരീക്ഷകൾ മാറ്റി

തമിഴ്നാട്ടിലും നിയന്ത്രണങ്ങൾ ശക്തമാക്കി

ഐ

ഒരു പ്രദേശത്തെ ഒഴിവാക്കി

സമ്പൂർണ ലോക് ഡൌണിലേക്ക് ഇപ്പോൾ പോകേണ്ടതിക്ലെന്ന നിലപാടാണ് എല്ലാവരും സ്വീകരിച്ചത്

എല്ലാവിധ ആൾക്കൂട്ടങ്ങളും ഒഴിവാക്കുക എന്നത് പ്രധാനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ആരാധനാലയങ്ങളിലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും

സിനിമ തീയേറ്റർ ഷോപ്പിംഗ് മാൾ ക്സബ്ബ് ജിംനേഷ്യം നീന്തൽക്കുളം ബാറുകൾ എന്നിവയുടെ പ്രവർത്തനം താത്ക്കാലികമായി നിർത്തിവയ്ക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

കേരളം കടന്നുപോകുന്നത് രോഗവ്യാപനം തീവ്രമായ ഘട്ടത്തിലൂടെയാണ്

ആൾക്കൂട്ടമുണ്ടാക്കുന്ന എല്ലാ വിധ സാമൂഹ്യ സാംസ്ക്കാരിക രാഷ്ട്രീയ മതപരമായ ചടങ്ങുകളും ഒഴിവാക്കണം

റേഷൻ കടകളുടെ പ്രവർത്തന സമയം ചുരുക്കണമെന്ന ആവശ്യം പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഹോസ്റ്റലുകളിൽ കൂകർശന നിയന്ത്രണം ഏർപ്പെടുത്തും

വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റും ഡ്രൈവിംഗ് ടെസ്റ്റും നിർത്തിവയ്ക്കാൻ നിർദ്ദേശമുണ്ട് ആദിവാസി മേഖലകളിൽ രോഗ വ്യാപനം തടയുന്നതിനും വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി ട്രൈബൽ സെല്ലും രൂപീകരിച്ചിട്ടുണ്ട്

രോഗ വ്യാപനം തടയുന്നതിനും സ്വയം സുരക്ഷക്കും ഇവർ വീടുകളിൽ റൂം നിരീക്ഷണത്തിൽ തന്നെ കഴിയണമെന്നും നിർദ്ദേശമുണ്ട്

ഓക്സിജൻ ലഭൃത ഉറപ്പു വരുത്തുന്നതിനായി കളക്ടർ എസ്

തദ്ദേശസ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായി ചേർന്ന വീഡിയോ കോൺഫറൻസിലാണ് കളക്ടറുടെ നിർദേശം

വൊക്കേഷണൽ ഹയർ സെക്കണ്ടറി പ്രാക്റ്റിക്കൽ പരീക്ഷകളും മേയ് മൂന്ന് മുതൽ എട്ട് വരെ നടത്തുവാൻ ് നിശ്ചയിച്ചിരുന്ന ഹയർ സെക്കൻഡറി തുലൃതാ പരീക്ഷകളും മാറ്റിവച്ചു

എസ് ഇ

പൊതു ഗതാഗതം പൂർണ്ണമായും നിർത്തലാക്കി

അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം

മറ്റന്നാൾ വയനാട് മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു